തിരിച്ചറിഞ്ഞുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള ആയുർവേദ മഹോത്സവത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു

പ്രതിജ്ഞ ചെയ്ത് കാഡ് ഉച്ച്ക്കോടി

എസ്

സിറ്റിയും എടികെ മോഹൻ ബഗാനും

ആഗോള ആയുർവേദ മഹോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ പ്രത്യേക സാഹചരൃത്തിൽ ആയുർവേദത്തിനും പാരമ്പര്യ വൈദ്യത്തിനും വളർന്നു വരാൻ തക്ക അവസരം ആഗോള തലത്തിൽ കൈവന്നിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചെലവ് കുറഞ്ഞ സേവനങ്ങളിലൂടെ ആയുഷ് ആരോഗൃ സംവിധാനം പ്രോത്സാഹിപ്പി ക്കുന്നതിനായാണ് രാജ്യത്ത് ദേശീയ ആയുഷ് മിഷൻ ആരംഭിച്ചത് പാരമ്പര്യ ഔഷധങ്ങളുടെ ഒരു ആഗോളകേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് ലോകാരോഗൃസംഘടന ഭ്യനേരത്തെ പ്രഖ്യാപിച്ചതായും ശ്രീ മോദി അറിയിച്ചു് ഇന്ത്യയിലെ ആയുർവേദ രംഗത്തിന് എല്ലാ പിന്തുണയും നൽക്കുര്മെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗ എന്നിവർ ഇന്നലെ നടന്ന പ്രഥമ വെർചൽ സമ്മേളനത്തിൽ പങ്കെടുത്തു സമ്മേളനത്തിനുശേഷം രാഷ്ട്രനേതാക്കൾ സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി

അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ ആഗോള വൃവസ്ഥയിലുള്ള പ്രതിബദ്ധത ക്വാഡ് രാജൃങ്ങൾ ഊന്നിപ്പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയിലും പുറത്തുമുള്ള സുരക്ഷയും അഭിവൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതിന് ഇതാവശ്യമാണ് നിയമവാഴ്ച ഗതാഗത സ്വാതന്ത്ര്യം സമാധാനപരമായ തർക്കപരിഹാരം ജനാധിപത്യ മൂല്യങ്ങൾ അതിർത്തിയുടെ സമഗ്രത എന്നീ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതായി നേതാക്കൾ അറിയിച്ചു

സുരക്ഷിതവും ചെലവു കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കാൻ കൈകോർക്കുമെന്ന് രാഷ്ട്രനേതാക്കൾ വാഗ്ദാനം ചെയ്തു

കാല്ദ്പ്പസ്ഥാ വൃതിയാനമെന്നത് ആഗോള പ്രാധാനൃമുള്ള പ്രശ്നമാണ്ഠെന്നു് പാരീസ് ഉടമ്പടി വിഭാവനം ചെയ്യുന്ന പരിധിക്കുള്ളിൽ ആഗോള താപനത്തെ പിടിച്ചുനിർത്താൻ വേണ്ടതെല്ലാം പ്ലെയ്യുമെന്നും കാഡ് രാജ്യങ്ങൾ അറിയിച്ചു

വാക്സിനുകൾ കാലാവസ്ഥാ വൃതിയാനം നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയെപ്പറ്റി നടന്ന ചർച്ചകൾ കാഡിനെ സുസ്ഥിരതയ്ക്കും അഭിവൃദ്ധിക്കുമുള്ള ചാലകശക്തിയാക്കി മാറ്റിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വയംപര്യാപ്ത ഇന്ത്യയുടെ വികസനം ലോക വികസനത്തിന് ആക്കം കൂട്ടുമെന്നും സ്വന്തമായാണ് കോവിഡ് പ്രതിരോധ മരുന്ന് ഇന്ത്യ വികസിപ്പിച്ചത് എന്നും ശ്രീ

കോവിഡിനെതിരെ പോരാടാൻ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യ സഹായിക്കു ന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വെബ്സൈറ്റ് പുറത്തിറക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്രയുടെ പുനരാവിഷ്ക്കരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു

ബംഗളുരു പൂനൈ ഭുവനേശ്വർ പട്ന മണിപ്പൂരിലെ മൊയ്രാങ് ജമ്മു കശ്മീരിലെ സാംബ എന്നിവിടങ്ങളിലാണ് പ്രദർശനം നടക്കുന്നത് ഇതിനു പുറമെ ന്യൂഡൽഹിയിലെ ദേശീയ മാധ്യമകേന്ദ്രത്തിൽ നടക്കുന്ന ഒരു പ്രദർശനത്തിന് ശ്രീ

സ്വാതന്ത്രൃത്തിന്റെ അമൃതമഹോത്സവം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദാരിദ്രൃം നിരക്ഷരത പിന്നോക്കാവസ്ഥ തുടങ്ങിയവയിൽ നിന്നും നാടിന് മോചനം നേടേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം തുടരുകയാണെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനു കീഴിലുള്ള റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ സ്വാതന്ത്യ സമരത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനവും ഗവർണർ സന്ദർശിച്ചു

ഗോവ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരുന്ന മുൻസിപ്പൽ കൌൺസിൽ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ ഗോവ നിയമ സെക്രട്ടറിയെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച സർക്കാരിനെ കോടതി വിമർശിച്ചു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷ്ട്ന്റെ നിഷ്പക്ഷത പ്രധാനമാണെന്നും സംസ്ഥാന സ്ക്ർക്കാർ ഉദ്യോഗസ്ഥന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധിക ചുമതല നൽകുന്നത് ഭരണഘടനയെ പരിഹസിക്കു്കു പോലെയാണെന്നും പരമോന്നത കോടതി പറഞ്ഞു

ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന

അതിനിടെ എൽ ഡി എഫ് പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്

വാക്സിന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് തീരുമാനം കോവിഡിനെതിരെയുള്ള സുരക്ഷിതവും ഫലപ്രദവുമായ ഓരോ കണ്ടുപിടിത്തവും പകർച്ചവ്യാധി തടയുന്നതിനുള്ള ഓരോ നാഴികക്കല്ലാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അഥനോം ഗബ്രിയേസസ് വൃക്തമാക്കി ഒരു ഡോസ് മാത്രം എടുക്കേണ്ട കോവിഡ് വാക്സിൻ ശ്രേണിയിലെ ആദൃത്തെയാണ് ജോൺസൺ ആന്റ് ജോൺസൺ വാക്സിൻ